അധിനിവേശത്തിനെതിരെ ശക്തമായ ശബ്ദമായി ഇന്ത്യ മാറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

കാലാവസ്ഥാ വൃതിയാനം ഭീകരപ്രവ്വർത്തനം പകർച്ചവ്യാധി തുടങ്ങിയ വെല്ലുവിളികൾ നേരിടാൻ അന്താരാഷ്ട്രതല സഹകരണം ക്മെച്ച്പ്പെടുത്തണമെന്ന് വിദേശകാര്യമന്ത്രി എസ്

മന്ത്രിസഭ രൂപീകരണ് ചർച്ചകൾക്കായി ബിഹാറിൽ ഇന്ന് എൻ ഡി എ

ശബരിമല ക്ഷേത്രനട ഇന്നു വൈകുന്നേരം തുറക്കും മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന് തുടക്കം

പ്രതിരോധ മേഖലയുടെ ശേഷി വർധിപ്പിക്കാനും സ്വയംപര്യാപ്തതയ്ക്കു മായി രാജ്യം അതിവേഗം പ്രവർത്തിക്കുകയാണ് തദ്ദേശീയ ആയുധ നിർ മ്മാണത്തിൽ ഇന്ത്യ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തീരുമാനിച്ചതായും പ്രധാനമന്ത്രി പറഞ്ഞു സൈനികരോടൊപ്പം രാജസ്ഥാനിലെ ജയ്സാൽ മേറിനു സമീപം ലോം ഗേവാലയിൽ ദീപാവലി ആഘോഷിക്കുകയായി രുന്നു പ്രധാനമന്ത്രി അന്താരാഷ്ട്ര വേദികളിൽ ഇന്ത്യ വ്യക്തമായ അഭിപ്രായങ്ങൾ അവതരിപ്പിക്കാറുന്നെും രാജ്യ താൽപ്പര്യങ്ങളിൽ ഇന്ത്യ വിട്ടുവീഴ്ച ചെയ്യില്ലെന്ന് ലോകരാഷ്ട്രങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കുന്നുന്നും അദ്ദേഹം വ്യക്തമാക്കി

തന്ത്രപരമായ ദൃപ്പിഷ്യങ്ങളിൽ അഭിപ്രായ രൂപീകരണം നടത്താനുള്ള വേദിയാണ്ട് കിഴക്കൻ ഏഷ്യ ഉച്ചകോടിയെന്ന് അദ്ദേഹം പറഞ്ഞു അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിക്കുക രാജ്യങ്ങളുടെ അതിർത്തിയേയും അധികാരത്തേയും അംഗീകരിക്കുക തുടങ്ങിയവയെ കുറിച്ചും സമഗ്രതയെയും പരമാധികാരത്തെയും ബഹുമാനിക്കുക ആഗോളാടിസ്ഥാനത്തിലുള്ള നിയമക്രമം പ്രോത്സാഹിപ്പിക്കുക എന്നിവ യുടെ പ്രാധാന്യത്തെക്കുറിച്ചും അദ്ദേഹം വിശദീകരിച്ചു കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ ഇന്ത്യ അന്താരാഷ്ട്ര സമൂഹത്തോട് കാണിച്ച പ്രതിബദ്ധതയും അദ്ദേഹം അംഗരാജ്യങ്ങളുടെ ശ്രദ്ധയിൽ പെടുത്തി

ജമ്മുകശ്മീരിൽ വെള്ളിയാഴ്ച നടന്ന വെടി നിർത്തൽ കരാർ ലംഘനമാണ് ഇന്ത്യയുടെ പ്രതിഷേധത്തതിന് കാരണം

നിരപരാധികളായ സാധാരണക്കാരെ പാകിസ്ഥാൻ സൈന്യം ബോധപൂർവം ലക്ഷ്യം വയ്ക്കുകയാണെന്ന് വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു സമാധാനം തകർക്കാൻ ഉത്സവകാലം തന്നെ തെരെഞ്ഞെടുത്ത് ആക്രമണം നടത്തുന്ന പാകിസ്ഥാന്റെ രീതി തികച്ചും ദൌർഭാഗ്യ കരമാണ് അതിർത്തി കടന്നുള്ള തീവ്രവാദം ഒരു രീതിയിലും അംഗീകരിക്കാനാവില്ലെന്നും ഇന്ത്യ ഓർമിപ്പിച്ചു

എ നിയ്ക്സഭാ് കക്ഷി നേതാവായി ജെ

ഇതിനായി പറ്റ്നയിൽ ചേർന്ന എൻ

കൂടുതൽ വിവരങ്ങളുമായി ജോസ്ന വോയിസ് കക്ഷിനേതാവായി തെരഞ്ഞെടുപ്പെടുന്ന ആളാണ് സർക്കാർ രൂപീകരണത്തിനായി ഗവർണറോട് അവകാശവാദം ഉന്നയിക്കുന്നത് ഗവർണർ അത് അംഗീകരിച്ച് അദ്ദേഹത്തെ സത്യപ്രതിജ്ഞക്കായി ക്ഷണിക്കുന്നതാണ് ചട്ടം

ജെ പി ജെ ഡി യു ഹിന്ദുസ്ഥാനി അവാം മോർച്ച വികാസ്ഷീൽ ഇൻസാൻ പാർട്ടി എന്നീ പാർട്ടികളുടെ എം എൽഎമാരാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത്

ഒരു സ്വതന്ത്ര അംഗവും എൻഡിഎയ്ക്കാണ് പിന്തുണ നൽകിയിട്ടുള്ളത് ബിഹാറിലെ പുതിയ സർക്കാർ രൂപീകരിക്കുന്നതിനെക്കുറിച്ചും യോഗം ചർച്ച ചെയ്യും നിയമസഭാ സ്പീക്കറുടെ തിരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള മറ്റ് വിഷയങ്ങളും യോഗത്തിൽ ചർച്ച ചെയ്യും

ജെ

എൽ എമാരുടെ യോഗവും വിളിച്ചു ചേർത്തിട്ടു്

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഗുൽമാർഗ് ബാരാമുള്ള സോനാമാർഗ് സോജിലാ പാസ് എന്നിവിടങ്ങളിലാണ് മഞ്ഞുവീഴ്ച ഉണ്ടായതെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു

ഇതിനു പുറമെ കാശ്മീർ താഴ്വരയിലെ ചില പ്രദേശങ്ങളിൽ ശക്തമായ മഴയും പെയ്യുന്നുണ്ട്

മലിനീകരണം ഗുരുതര വിഭാഗത്തിൽ എത്തിയതായി കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് അറിയിച്ചു ഡൽഹിയിലും പരിസരപ്രദേശങ്ങളിലും പുകമഞ്ഞ് നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥയാണിപ്പോൾ സഫർ വായു ഗുണനിലവാര സംവിധാനം പ്രകാരം ഇന്ന് ഉച്ചയോടെ സ്ഥിതി മെച്ചപ്പെടാൻ സാധ്യതയുണ്ടെന്ന് അധികൃതർ അറിയിച്ചു

രാജ്യത്തെ രോഗനിരക്കും കുറഞ്ഞു വരികയാണ്

വെർചൽ ക്യൂ വഴി ബുക്ക് ചെയ്തു വരുന്നവർക്കു മാത്രമേ പ്രവേശനം അനുവദിക്കൂ

പുതിയ താമസ സ്ഥലത്തു പേരു ചേർക്കുന്നതിനും പട്ടികയിൽ നിലവിലുള്ള വോട്ടർമാരുടെ വിവ്യ്ക്കുങ്ങളിൽ എന്തെങ്കിലും തെ റ്റുങ്കെിൽ തിരുത്തുന്നതിനും അവസരമൂായിരിക്കുമെന്ന് സംസ്ഥാനത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ അറിയ്യിച്ചു്

സമൂഹത്തിനായി അദ്ദേഹം നൽകിയ മഹത്തായ സംഭാവനകളെ പ്രധാനമന്ത്രി സ്മരിച്ചു നിരാലംബരുടെയും ചൂഷണത്തിന് ഇരയായവരുടെയും ക്ഷേമത്തി നായി പ്രവർത്തിച്ച ഒരു മഹാനായിരുന്നു ബിർസാമു എന്ന് അദ്ദേഹം ട്ടിറ്ററിൽ കുറിച്ചു സ്വാതന്ത്ര്യസമരത്തിൽ അദ്ദേഹം വഹിച്ച സുപ്രധാന പങ്കും സാമൂഹ്യ ഐക്യത്തിനായുള്ള അദ്ദേഹത്തിന്റെ ശ്രമങ്ങളും എല്ലായ്പ്പോഴും ജനങ്ങൾക്ക് പ്രചോദനമാകുമെന്ന് ശ്രീ മോദി പറഞ്ഞു സംസ്ഥാന രൂപീകരണ ദിനമായ ഇന്ന് ജാർഖണ്ഡിലെ ജനങ്ങൾക്ക് പ്രധാനമന്ത്രി ആശംസകൾ നേർന്നു